കാർഷിക രംഗത്ത് പുരോഗതികൈവരിക്കാനായി പാരമ്പര്യ ജൈവകൃഷിക്ക് ഊന്നൽ നൽകണണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പാരമ്പര്യ അറിവുകൾ സാങ്കേതിക വിദ്യയിലൂടെ മേഖലയ്ക്ക് പ്രയോജനപ്പെടുത്തി ഗ്രാമീണ കാർഷിക നേട്ടമുണ്ടാക്കണമെന്നും പ്രധാനമന്ത്രി

കാർഷികോത്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്നതിന് കർഷകരെ സഹായിക്കാനായി ആവിഷ്കരിച്ച കിസാൻ രഥ് എന്ന മൊബൈൽ ആപ്തിക്കേഷനിലൂടെ കൃഷി വകുപ്പ് കർഷകർക്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭ്യമാക്കും സമുദ്രാന്തർഭാഗത്ത് വളരുന്ന കളസസ്യങ്ങൾ എങ്ങനെ മണ്ണിനെ സമ്പുഷ്ടമാകുമെന്നതിനെക്കുറിച്ചുള്ള സാധൃതാ പഠനം നടത്താൻ കാർഷിക ഗവേഷണ സമൂഹത്തോട് ശ്രീ മോദി ആവശ്യപ്പെട്ടു

കേന്ദ്ര ഭരണ പ്രദേശമായ ലഡാകിനെ ജൈവ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ ഓർഗാനിക് ഡവലപ്പ്മെന്റ് ഇനിഷ്യേറ്റീവിനാണ് രാജ്യത്ത് തുടക്കമായത്

പദ്ധതിയുടെ ഉദ്ഘാടനം ലഡാക് ലെഫ്റ്റനന്റ് ഗവർണ്യർ ആർ

കോവിഡ് വ്യാപന വിഷയത്തിൽ ചൈന പുലർത്തിയ രഹസ്യാത്മക സ്വഭാവമാണ് സ്ഥിതിഗതികൾ രൂക്ഷമാക്കിയത്

രാജ്യത്തിനാവശ്യമായ മാസ്ക്കുകളും മെഡിക്കൽ ഉപകരണങ്ങളും അമേരിക്ക തദ്ദേശീയമായി ഉത്പാദിപ്പിക്കുന്നുണ്ട് ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജൃങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇവ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ട്രംപ് പറഞ്ഞു കോവിഡിനോട് പൊരുതുവാൻ മുന്നിൽ നിൽക്കുന്ന ആരോഗൃപ്രവർത്തകരേയും കോവിഡ് മരുന്നു കണ്ടുപിടിക്കാൻ പ്രയത്നിക്കുന്ന ഗവേഷകരേയും ട്രംപ് അഭിനന്ദിച്ചു

പ്രി അമേരിക്കൻ ജനതയ്ക്കും പ്രസിഡന്റിനും അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി ട്വിറ്ററിൽ സന്ദേശം അയയ്ക്കുകയായിരുന്നു

അടുത്ത മൂന്ന് നാലു ദിവസങ്ങളിൽ രാജ്യത്ലസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പു്ണ്ട്

രണ്ടരലക്ഷത്തോളം പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്

ജനറൽ ആശുപത്രിയിലാണ് ഇതിനുള്ള സൌകര്യം സജ്ജമാക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമാ്യൂി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി

കർഫ്യൂ കർശനമായി നടപ്പാക്കാൻ മുഖ്യമന്ത്രി ബി

കേരളമുൾപ്പെടെ കർണാടകത്തിന്റെ സംസ്ഥാന അതിർത്തികളിൽ അടച്ചിട്ടിരിക്കുന്ന ചെക്പോസ്റ്റുകൾ നാളെ രാവിലെ മാത്രമേ തുറക്കുകയുള്ളൂ

സംസ്ഥാനത്ത് ഒരു ദിവസം ഏറ്റവും കൂടുതൽ കോവിഡ് മരണം സംഭവിക്കുന്നത് ഇന്നലെയാണ്

തലസ്ഥാന നഗരിയിലെ സെക്രട്ടറിയേറ്റ് രാജ്ഭവൻ ജില്ലാ ഭരണകൂടം മറ്റ് അവശ്യ സർവ്വീസുകൾ എന്നിവയൊഴികെ എല്ലാ സർക്കാർ സ്വകാര്യ ഓഫീസുകളും സ്ഥാപില്ലുങ്ങളും പൂർണ്ണായും അടച്ചിടുമെന്ന് അരുണാചൽ പ്രദേശ്പ്പിഫ് സെക്രട്ടറി അറിയിച്ചു